കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നും ഇതിനായി രാജ്യത്തെ പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ഒരു പൊതുപരിപാടിയിൽ ഗൂഢാലോചനകളിലൂടെ വ്യക്തമാക്കി ഭാരതത്തെ അസ്ഥിരപ്പെടുത്താമെന്നാണ് നമ്മുടെ അയൽക്കാർ വിശ്വസിക്കുന്നതെങ്കിൽ അതവർ ചെയ്യുന്ന വലിയ തെറ്റാണെന്നും ഇത്തരം ശ്രമങ്ങൾ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിലെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി ഭരണ കൂടത്തെ കുറ്റപ്പെടുത്താനുള്ള ആയുധമായി ആക്രമണത്തെ ഉപയോഗിക്കരുതെന്ന് ശ്രീ മോദി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു ഇത്തരം ക്രൂരകൃത്യങ്ങൾക്കെ്തിരെ ഭാരതം ഒറ്റക്കെട്ടായി പൊരുതുമെന്ന സന്ദേശമാണ് നാം ലോകത്തിന് നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ന് രാവിലെ ന്യൂഡൽഹീയ്യിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയോഗത്തിലാണ് തീരുമാനം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും പാക്കിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് യോഗശേഷം കേന്ദ്രമന്ത്രി അരുൺജെയ്റ്റിലി പറഞ്ഞു ഭീകരവാദികളും അവർക്ക് ഒത്താശ ചെയ്യുന്നവരും ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു

എഫ് വാഹനവ്യൂഹത്തിന് നേരെ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ചാവേർ ആക്രമണം നടത്തിയത്

ഫ് പുറത്തുവിട്ടിട്ടുള്ളത് സൈനിക പരിശീലനത്തിനു ശേഷം ജമ്മു ശ്രീനഗർ ദേശീയ പാതയിലൂടെ മടങ്ങുകയായിരുന്ന വാഹനവ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു

വസന്ത് കുമാറിന്റെ ഭൌതിക ദേഹം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വയനാട്ടിൽ എത്തിക്കും

ഭീകര ് പ്രവർത്തനം നേർിട്ടാൻ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അമേരിക്ക് ്റഷ്യ ഫ്രാൻസ് യു

ഇ തുടങ്ങിയ രാജ്യങ്ങൾ ഉറപ്പ് നൽകി കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ ഒലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ട് നേപ്പാളിന്റെ പിന്തുണ അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേയ്ക് ഹസീന ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സാലിഹ് മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാനിദ് എന്നിവരും ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരരെ നേരിടാൻ ഒരുക്കമാണെന്ന് യുഎഇയും അറിയിച്ചിട്ടുണ്ട്

ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുമെന്നും അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്

ഇത്തരം മനുഷ്യത്വരഹിത നീക്കങ്ങളെ ചെറുക്കണമെന്ന് ഫ്രഞ്ച് എംബസി പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മധ്യപ്രദേശിലെ ഇറ്റാർസി ദാർ എന്നിവിടങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കാനിരുന്ന പൊതുപരിപാടികളാണ് റദ്ദാക്കിയത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ദൂലെയിലും നടത്താനിരുന്ന പരിപാടികളും മാറ്റി വച്ചു

സുശക്തവും സുരക്ഷിതവുമായ രാഷ്ട്ര നിർമ്മാണത്തിനുള്ള സമയമാണ് ആഗതമായിരിക്കുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെന്റിന് എതിരെ കോൺഗ്രസ് രൂക്ഷമാ്യ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ശ്രീ അമിത്ഷായുടെ പ്രതികരണം

രാജ്യത്ത് ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ നിയമങ്ങൾക്കെതിരായോ രാജ്യ താത്പര്യങ്ങൾക്കെതിരായോ രാജ്യത്തിന്റെ ഏകീകരണത്തിനെതിരായോ ഉള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു

ന്യൂഡൽഹിയിൽ നിന്നും കാൺപൂർ വഴി വാരാണസിയിലേക്കാണ് ട്രെയിൻ സർവ്വീസ് നടത്തുന്നത് തിങ്കൾ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവ്വീസ് നടത്തുന്ന ഈ ട്രെയിൻ എട്ടു മണിക്കൂറിൽ ന്യൂഡൽഹിയിൽ നിന്ന് വാരാണസിയിൽ എത്തും

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഐ സി ലേബർ ഓഫീസ്റുകൾ തുടങ്ങി സ്ഥാപനങ്ങളോട് പദ്ധതിയുടെ ആനുകൂല്യങ്ങളെ സ്ംബന്ധിച്ച് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകാൻ തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്

സമാധാന കാലത്ത് മൂന്ന് ്വർഷത്തേയ്ക്കായിട്ടാണ് ് സേനാംഗങ്ങളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയമിക്കുന്നതെങ്കിലും രണ്ടര വർഷം കഴിയുമ്പോൾ തന്നെ അവരെ സ്ഥലം മാറ്റം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി സൈനികർ വോട്ട് രേഖപ്പെടുത്തുന്നത് ഉറപ്പാക്കുന്ന വിധത്തിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിൽ കമ്മീഷനു തീരുമാനം എടുക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി

രണ്ടു ദിവസങ്ങളിലായി എത്തിസലാത്ത് അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിയമസഭാ സ്പീക്കർ പി

പ്രവാസി നിക്ഷേപം സ്വരൂപിക്കാൻ പ്രത്യേക കമ്പനി പ്രവാസി ഗവേഷണത്തിന് അന്താരാഷ്ട്ര പഠനകേന്ദ്രം പ്രവാസികളുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ കമ്പനി പുനരധിവാസ പദ്ധതികൾ എന്നിവ ലോക കേരള സഭയിൽ പ്രഖ്യാപിക്കും

കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിലെ അതേ നടപടിക്രമങ്ങൾ ഇവിടേയും പിന്തുടരണമെന്ന് കോടതി വ്യക്തമാക്കി

ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം വിദേശത്ത് ചികിത്സയിലായിരുന്നു